പ്രധാനമന്ത്രി ഫസൽ ബിമ യോജന അഞ്ചുവർഷം പൂർത്തിയാക്കി കോടിക്കണക്കിനു കർഷകർ പദ്ധതിയുടെ ആനുകൂലൃം നേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ധനമന്ത്രാലയത്തിന്റെ വ്യവസായ സൌഹൃദ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്ന എട്ടാമത് സംസ്ഥാനമായി കേരളം

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്

ഒഡീഷ പോരാട്ടം

പദ്ധതിയുടെ അഞ്ചാം വാർഷിക വേളയിൽ എല്ലാ ഗുണഭോക്താക്കളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പദ്ധതി രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് പ്രയോജനപ്പെട്ടുവെന്നും അദ്ദേഹം പ്ര്യേഞ്ഞു അഞ്ച് വർഷം പൂർത്തിയാക്കിയ പദ്ധതി പ്രയോജ്നപ്പെടുത്തി കർഷകർ സ്വയംപര്യാപ്തരാകണം എന്നൂറി ്ട്രേന്ദ്ര സർക്കാർ കാർഷിക സമൂഹത്തോട് അഭ്യർത്ഥിച്ചു

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ് വോയ്സ് തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നും ഗുജറാത്ത് പശ്ചിമബംഗാൾ കർണാടക എന്നിവിടങ്ങളിൽ മകര സംക്രാന്തിയെന്നും പേരുള്ള വിളവെടുപ്പ് ആഘോഷങ്ങൾ ബിഹു എന്ന പേരിൽ ആണ് അസമിൽ ് അറിയപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന ഹിമാചൽപ്രദേശ് ഡൽഹി ജമ്മു ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇന്നാണ് മകരസംക്രാന്തിക്ക് ഒരു രാത്രി മുൻപേയുളള ലോഹ്രി ആഘോഷങ്ങൾ

രാജ്യത്തിന്റെ വിവിധ് ഭാഗങ്ങളിൽ വിളവെടുപ്പ് ഉത്സവം ആദ്യ്യോഷിക്കുന്ന് എല്ലാ പൌരന്മാർക്കും രാഷ്ട്രപതി രാംനാഥ് കോപ്പിന് ആശംസകൾ നേർന്നു സമൂഹത്തിൽ സ്നേഹപ്പൂം സാഹോദര്യവും വളർത്താൻ ഈ ആഘോഷങ്ങൾ വ്യഴിത്തുക്കെട്ടേയെന്ന് രാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു

രാജ്യമൊട്ടാകെ ഉത്സവമാഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ പൌരന്മാർക്കും സന്തോഷവും ആരോഗ്യവും ഉ ാകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പല നിലയങ്ങളും അടച്ചുപൂട്ടുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രസാർഭാരതി അറിയിച്ചു

എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രാദേശിക പരിപാടികൾ നിർമ്മിക്കുന്നത് തുടരും

രാജ്യമൊട്ടാകെ പുതിയ നൂറിലധികം എഫ്

യുടെ ദേശ്വീി്യൂ കാലാവസ്ഥാ കേന്ദ്രവും ഇന്ത്യൻ ഭൌമശാസ്ത്ര മന്ത്രാല്ലിയ്ക്കും തമ്മിലുള്ള ശാസ്ത്ര സാങ്കേതിക സഹകരണം സംബ്ല്ക്ഡിച്ച ധാരണാപത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അ്ധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി ഇരു രാജ്യങ്ങളും തമ്മിൽ ശാസ്ത്ര സാങ്കേതിക വിവരങ്ങൾ കൈമാറൽ സമുദ്രത്തിലൂടെ കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖല വിനൃസിക്കൽ വേഗതയേറിയതും വിശ്വസനീയവുമായ പ്രവചനങ്ങൾക്കായി സുനാമി മോഡലുകളുടെ ഗവേഷണം നടത്തൽ എന്നിവ ഈ ധാരണാപത്രത്തിലൂടെ നടപ്പാക്കും

കേരളത്തിന് പുറമേ ആന്ധ്രാപ്രദേശ് കർണാടകം തമിഴ്നാട് തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിരുന്നു

സ്കൂൾ വിദ്യാഭ്യാസം പ്പൂർത്തീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നുതില്ലെ സങ്കീർണതകൾ പരിഹരിക്കാൻ ഇത് ഗുണം ചെയ്യുമ്മെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അതിനിടെ ഝാർഖണ്ഡിലെ നാല് ജില്ലകളിലും ജമ്മുകശ്മീരിലെ ഒരു ജില്ലയിലും പക്ഷികൾ ക്രമാതീതമായി ചത്തൊടുങ്ങി

യിൽ നിന്നും വന്ന ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ റീജിയണൽ വാക്സിൻ സ്റ്റോറുകളിൽ സൂക്ഷിക്കുന്ന വാക്സ്ട്രിൻ പിന്നീട് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും

ഒഡീഷ എഫ്

ഗോവയിലെ ജി

അതേസമയം ആറ് പോയിന്റ് മാത്രമുള്ള ഒഡീഷ പട്ടികയിൽ ഏറ്റവും താഴെയാണ്

ആദ്യ മത്സരത്തിൽ പുതുച്ചേരിയെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തോടെയുട്ടുണ്ട് സഞ്ജു സാംസന്റെ നേതൃത്വത്തിലുള്ള കേരളം മുംബ്ബെൺ ആദ്യ മത്സരത്തിൽ ഡൽഹിയോട്ടു പ്പരാജയപ്പെട്ടിരുന്നു

ചെലവും ബാധൃതയും കൃത്യമായി കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്നും നഷ്ട സാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാറില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു